പുരോഗമിക്കുന്നു

സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു

കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റം

ലീഡ് തുടരുന്നു വയനാട്ടിൽ രാഹുൽഗാന്ധിയ്ക്ക് മികച്ച ലീഡ്

നേട്ടം

ജെ

ജെ

തെലങ്കാനയിൽ ടി ആർ എസ് ഏർദ് ്സീറ്റിലും ബി ജെ പി ഒരു സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു

തമിഴ്നാട്ടിൽ ഈറോഡ് കൂടല്ലൂർ തെങ്കാശി തിരുനെൽവേലി എന്നിവിടങ്ങളിൽ ഡി എം കെയും വിരുതനഗറിൽ കോൺഗ്രസും മുന്നിട്ട് നിൽക്കുന്നു

പുതുച്ചേരിയിൽ കോൺഗ്രസാണ് മുന്നിൽ

തമിഴ്നാട്ടിലെ വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട്

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ വിവി പാറ്റുമായി ഒത്തുനോക്കേണ്ടതിനാൽ അന്തിമഫലം വൈകുമെന്നാണ് കരുതുന്നത്

ഓരോ മണ്ഡലത്തിലേയും തെരഞ്ഞെടുത്ത അഞ്ച് ബൂത്തുകളിലെ വോട്ടുകളാണ് ഇത്തരത്തിൽ ഒത്തുനോക്കുന്നത്

രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഇലക്ഷൻ കമ്മീഷന്റെ നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ തുറന്നത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്

എ അധ്യക്ഷ സോണിയാ ഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പാർട്ടി തലവൻ മുലായം സിങ് യാദവ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് മറ്റ് മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെ ടെ പ്രമുഖ നേതാക്കളുടെ വിധിയാണ് ഇന്ന് നിർണ്ണയിക്കപ്പെടുന്നത്

ബിജെപിയിലെ രാകേഷ് സിങ് കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ് തൊമാർ മുൻ ക്ടിന്ദ്രമന്ത്രിയും കോൺഗ്രസ്സ് സ്ഥാനാർത്ഥിയുമായ കാന്തിലാൽ ഭുരിയിട്ട് മൂതിർന്ന കോൺഗ്രസ്സ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ മുഷ്യമുന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് എന്നിവരാണ് സംസ്ഥാനത്ത് മൽസരിക്കുന്ന പ്രമുഖർ

ഒന്നാംവട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഹിമാചൽപ്രദേശിലെ ഹാമിർപൂർ നിയോജകമ ണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി അനുരാഗ് ഥാക്കൂർ മുന്നിലാണ്

ആന്ധാപ്രദേശ് സിക്കിം ഒഡീഷ അരുണാചൽപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെര ഞ്ഞെടുപ്പ് നടന്നത്

ഡി പി നാല് സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു

ബിജാപൂരിൽ മൽസരിക്കുന്ന ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് മുന്നിട്ട് നിൽക്കുന്നു അരുണാചൽപ്രദേശിൽ ബി ജെ

സിക്കിമിൽ എസ്

എഫ് ആറിടത്തും എസ്

എം കെ സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്

ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ രണ്ടൂം സ്ഥാനത്തും എൽ

എഫിന്റെ സി ദിവാകരൻ മൂന്നാക്സ്ഫാനത്തുമാണ്

ഡി എഫ് ആധിപത്യം പുലർത്തിയിട്ടിരുന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി

കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ യു

എപ്ഥ് രണ്ടു ലക്ഷത്തിലേറെ വോട്ടു കൾക്ക് മുന്നിലാണ് രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലം എന്ന നില യിൽ വയനാട്ടിലെ വിശ്ശേഷ്ങൾ പങ്കുവയ്ക്കാനായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻ്റ്സ്ന്റ് ചേരുന്നു

ഡി എഫ് മുന്നിലാണ് ആലപ്പുഴയിൽ എൽ

കേര ളത്തിലെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നിലവിലെ സ്ഥിതി അനുസ രിച്ച് യു ഡി എഫ് ആണ് മുന്നിൽ താരസാന്നിദ്ധ്യം കൊണ്ട് ശ്രദ്ധേയ മായ തൃശൂർ മണ്ഡലത്തിൽ യു ഡി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു

ഇന്ന് രാവിലെ ആരംഭിച്ച പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ഭരണകക്ഷിയായ എൻ ഡി എ യ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് മുന്നേറ്റം